എം അഞ്ചാമത് കിഴക്കൻ സാമ്പത്തിക ഫോറം ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യയിലേക്ക് പോകും

സമഗ്ര ഗതാഗത സൌകര്യത്തോടുകൂടിയ നഗരമായി കൊച്ചിയെ മാറ്റാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു

എഫ് എൻ

എ സ്ഥാനാർത്ഥികൾ നാളെ പത്രിക നൽകും

സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ

എഫിന്റെ രാപ്പകൽ സമരം തുടങ്ങി

സംസ്ഥാന ഹജ്ജ് കമ്മറ്റി മുഖേന തീർത്ഥാടനത്തിന് പോയ വരുടെ മടക്കയാത്ര ഇന്നവസാനിക്കും അഞ്ചാമത് കിഴക്കൻ സാമ്പത്തിക ഫോറം ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യയിലേക്ക് പോകും റഷ്യൻ നഗരമായ വ്ളാഡിവസ്റ്റോക്കിൽ നടക്കുന്ന കിഴക്കൻ സാമ്പത്തിക ഫോറം ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയാണ് മുഖ്യാതിഥി

ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്താ നുള്ള നിരവധി വിഷയങ്ങൾ റഷ്യൻ നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ ന്യൂഡൽഹിയിൽ പറഞ്ഞു

പ്രതിരോധം ഊർജ്ജാവശ്യ ത്തിനുള്ള ആണവ സഹകരണം എന്നിവയിൽ പരമ്പരാഗത രീതികൾക്കതീ തമായ മാർഗ്ഗങ്ങൾ കണ്ടെത്തുമെന്ന് വിദേശകാരൃ സെക്രട്ടറി പറഞ്ഞു ഖനനം നൈപുണ്യവികസനം ഉരുക്കുവ്യവസായം ഔഷധരംഗം വിദ്യാഭ്യാസം കൃഷി എന്നീ രംഗങ്ങളിൽ സഹകരണ സാധ്യതകൾ വിലയിരുത്തും കൊച്ചി മെട്രോയുടെ മഹാരാജാസ് ജംഗ്ഷൻ മുതൽ തൈക്കൂടം വരെ ദീർഘിപ്പിച്ച സർവീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സമഗ്ര ഗതാഗത സൌകര്യത്തോടു കൂടിയ നഗരമായി കൊച്ചിയെ മാറ്റാനാണ് ഗവൺമെന്റ് ലക്ഷ്യമി ടുന്നതെന്നും ഇതിന് നടപടിയാരംഭിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു കൊച്ചിയുടെ മുഖഛായ മാറ്റുന് പദ്ധതികൾക്കാണ് ഇതോടെ തുട ക്കമാകുന്നതെന്നും നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്കാണ് മെട്രോ പ്രവേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു തൃപ്പൂണിത്തുറ പേട്ട എസ് എൻ ജംഗ്ഷൻ പാതയുടെ ശിലാസ്ഥാപനവും ജല മെട്രോ പദ്ധതിയുടെ ആദ്യ ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാ ടനവും ചടങ്ങിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു ജലഗതാഗത സാധ്യത പരാമവധി ഉപയോഗപ്പെടുത്താനാണ് ജലമെട്രോ പദ്ധതിയാരംഭി ക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു

ബേക്കൽ മുതൽ കോവളം വരെ ടൂറിസത്തിന് വൻവികസന സാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

എറണാകുളം സൌത്ത് കടവന്തറ എളംകുളം വൈറ്റിലതൈക്കൂടം എന്നിവ യാണ് സ്റ്റേഷനുകൾ പുതിയ റൂട്ട് നാടിന് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി മുഖ്യ മന്ത്രിയും കേന്ദ്രമന്ത്രിയും ഹൈബി ഈഡൻ എം പി യും അട ങ്ങുന്ന സംഘം മാഹാരാജാസ് ജംഗ്ഷനിൽ നിന്ന് കടവന്തറ വരെ മെട്രോയിൽ സഞ്ചരിച്ചു യാത്രക്കാരുടെ സർവീസ് നാളെ രാവിലെ ആറിന് തുടങ്ങും പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മൽസരത്തിന് അരങ്ങൊരുങ്ങി യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോമും എൻഡിഎ സ്ഥാനാർത്ഥി എൻ ഹരിയും നാളെ പത്രിക നൽകുന്നതോടെ തെഞ്ഞെടുപ്പു പ്രചരണ രംഗം സജീവമാകും അതേസമയം യുഡിഎഫ് സ്ഥാനാർത്ഥി ജോസ് ടോമിന് കേരളാ കോൺഗ്രസ് എമ്മിന്റെ തിരഞ്ഞെടുപ്പു ചിഹ്നമായ രണ്ടില ലഭിക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി രണ്ടില ചിഹ്നം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് തിരഞ്ഞെടുപ്പു കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്

സാങ്കേതിക പ്രശ്നങ്ങളുള്ള തിനാൽ രണ്ടില അനുവദിക്കാനാവില്ലെന്ന് പി ജെ ജോസഫും പറയുന്നു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണനേട്ടങ്ങൾ മുൻനിർത്തി യാണ് പാലാ ഉപതരെഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തുകയെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഇടതുപക്ഷമുന്നണി ആത്മവിശ്വാസത്തിലാണ് ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷ യമാക്കുമെന്ന് അദ്ദേഹം പാലായിൽ പറഞ്ഞു

വോട്ടെണ്ണൽ നാളെ രാവിലെ പത്തിന് ആരംഭിക്കും പി എസ് സി പരീക്ഷാ ക്രമക്കേടിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കെ

സി പ്രസിഡൻറ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു

ഡി എഫ് രാപകൽ സമരം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പി എസ് സി യുടെ സുതാര്യത നഷ്ടപ്പെട്ടെന്നും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഉത്ക്കണ്ഠ രേഖപ്പെടുത്തിയെന്നും മുല്ലപ്പള്ളി പറഞ്ഞു പാലാ ഉപതെരഞ്ഞെടുപ്പ് ഗവൺമെന്റിനെതിരെ വിധിയാകുമെന്നും പാലായിൽ ചിഹ്നത്തെ കുറിച്ച് യു

എഫിന് ആശങ്കയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രളയാനന്തര പുനരധിവാസ പ്രവർത്തനത്തിൽ ഗവൺമെന്റ് പൂർണമായും പരാജയപ്പെട്ടെന്നും പി

സി യുടെ വിശ്വാസ്യത തകർത്തുവെന്നും ആരോപിച്ചാണ് യു ഡി എഫ് ജില്ലാക്കമ്മറ്റി കളുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിനും കലക്ടറേറ്റുകൾക്കും മുമ്പിൽ രാപ്പകൽ സമരം നടത്തുന്നത് ഗവൺമെന്റിന്റെ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും സമരത്തിൽ യു ഡി എഫ് ഉന്നയിക്കുന്നുണ്ട് കിഫ്ബിയിൽ സമഗ്ര ഓഡിറ്റിങ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞു

കിഫ്ബിയുടെ ഓഡിറ്റിങ് സി

ജി യ്ക്ക് നൽകുന്നതിനെ സംസ്ഥാന ഗവൺമെന്റ് എന്തിനാണ് എതിർക്കുന്നതെന്നും ചെന്നി ത്തല ചോദിച്ചു

ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കശ്മീർ സന്ദർശന റിപ്പോർട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു

സീൽ ചെയ്ത കവറിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ തരിഗാമിയുടെ ആരോഗ്യസ്ഥി തിയും കശ്മീരിലെ ഇപ്പോഴത്തെ സ്ഥിതിയും പ്രതിപാദിച്ചിട്ടുണ്ടെ ന്നാണ് റിപ്പോർട്ട്

എക്സ് മീഡിയ കേസിൽ സി ബി ഐ അറസ്റ്റും കസ്റ്റ ഡി റിമാന്റും ചോദ്യം ചെയ്ത് മുൻധനമന്ത്രി പി ചിദംബരം നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും കസ്റ്റഡി കാലാവധി തീരുന്നതിനാൽ ചിദംബരത്തെ ഡൽഹിയിലെ വിചാ രണക്കോടതിയിൽ വൈകിട്ട് ഹാജരാക്കും

അവശേഷിക്കുന്നവ അടുത്തവർഷത്തോടെ വ്യോമസേന യ്ക്ക് ലഭ്യമാകും മഹാരാഷ്ട്രയിലെ നവിമുംബൈയിൽ ഒ

സി പ്ലാന്റിലു ണ്ടായ തീപിടുത്തിൽ നാലുപേർ മരിച്ചു മൂന്നുപേർക്ക് പരി ക്കേറ്റു

ഗുജറാത്തിലെ സൂററ്റിലേക്ക് വാതകം നൽകുന്ന ഹാസിര പ്ലാന്റിലാണ് തീപിടു ത്തമുണ്ടായതെന്ന് ഒ

സി അധികൃതർ മുംബൈയിൽ അറി യിച്ചു

ചന്ദ്രന്റെ ഗുരുത്വാകർഷണത്തിൽ പ്പെടാതെ ലാന്ററിന് സുരക്ഷിതമായി ചന്ദ്രോപരിതലത്തിൽ പതുക്കെ ഇറക്കുന്നതിനാണ് ഭ്രമണപഥം താഴ്ത്തുന്നത്

അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ത്യൻ തീർത്ഥാടകർക്ക് ഒരുക്കേണ്ട സൌകര്യങ്ങൾ സംബന്ധിച്ച് ന്യൂനപക്ഷ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ സൌദി അറേബ്യൻ അധികൃതരുമായി ചർച്ച ചെയ്തു ഈവർഷത്തെ ഹജ്ജ് തീർത്ഥാടനം തിക ച്ചും സുഗമമായിരുന്നുവെന്ന് പ്രതിനിധി സംഘം വിലയിരുത്തി രണ്ട് ലക്ഷം ഇന്ത്യക്കാരാണ് ഈ വർഷം തീർത്ഥാടനം പൂർത്തിയാക്കിയത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അന്തരീക്ഷ മലിനീകരണം കൂടുതലാണെന്ന് കൊച്ചി മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എൻവയോൺമെന്റ് പഠനത്തിൽ വ്യക്തമാക്കി കോട്ടയം കണ്ണൂർ പാലക്കാട് വയനാട് കൊച്ചി എന്നിവിടങ്ങളി ലാണ് ഇതുസംബന്ധിച്ച് പഠനം നടത്തിയത് അന്തരീക്ഷത്തിൽ അണുപ്രസരണ അളവ് കൂടുതൽ കൊച്ചി വൈറ്റിലയിലും കോട്ടയം കെ കെ റോഡ് പാലക്കാട് കഞ്ചിക്കോട് വയനാട്ടിലെ സുൽത്താൻബത്തേരി കണ്ണൂർ എന്നിവിടങ്ങളിലുമാണെന്ന് പഠനം സൂചിപ്പിക്കുന്നു ഉരുൾപൊട്ടലിനെ തുടർന്ന് തകരാറിലായ കക്കയം പവർഹൌ സിലെ ജനറേറ്ററുകൾ ശനിയാഴ്ചയോടെ പ്രവർത്തനക്ഷമമാക്കാൻ കഴിയുമെന്ന് അധികൃതർ അറിയിച്ചു

സംസ്ഥാനത്ത് വെള്ളിയാഴ്ച്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യ തയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു കനത്ത മഴ കണക്കിലെടുത്ത് കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകു ളം ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാ പിച്ചു കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഇടുക്കി എറണാകുളം ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ നാളെയും കനത്ത മഴ പ്രതീക്ഷിക്കുന്നതിനാൽ യെല്ലോ അലർട്ട് ആയിരിക്കും സ്വർണ വിലയിൽ വർധന

മൂ ന്നുദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആഭ്യന്തരവിപണിയിൽ സ്വർണവില വർധിക്കുന്നത്